സ്വരൂപ് ഭട്ട്നാഗർ പുരസ്കാരം പ്രിയ്ർന്മന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും

പ്രധാനമന്ത്രി നരേന്ദ്ര്മോദി ഇന്ന് രാജ്യമെമ്പാടുള്ള ന് ബി ജെ

വിയറ്റ്നാമിൽ തുടക്കമായി

ഓസ്ട്രേലിയയ്ക്ക്

ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു യുദ്ധ വിമാനം ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള പ്രതികരണമായി പാകിസ്ഥാൻ തിരിച്ച് വ്യോമാക്രമണത്തിന് തുനിഞ്ഞെങ്കിലും സദാ ജാഗരൂകരായിരുന്ന ഇന്ത്യൻ വ്യോമസേന അയൽ രാജ്യത്തിന്റെ ശ്രമങ്ങളെ വിഫലമാക്കിയെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം സ്വന്തം മണ്ണിൽ തന്നെ തകർന്ന് വീണതായി ശ്രീ

പാകിസ്ഥാൻ പിടിയിലായ പൈലറ്റിന്റെ സുരക്ഷി ഉൾപ്പുവരുത്തണമെന്ന് പാകിസ്ഥാൻ ആക്ടിംഗ് ഹൈക്മ്മ്യീഷനോട് ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിദേശക്ടാർൃമന്ത്രാലയ വക്താവ് അറിയിച്ചു

ജെ പി ഗവൺമെന്റ് രാഷ്ട്രീയ വത്ക്കരിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ബി ജെ പി നിഷേധിച്ചു ഇന്ത്യയുടെ ഐക്യ നഷ്ടപ്പെട്ടതായി ചിത്രീകരിക്കാൻ ഇത്തരം വാദങ്ങൾ പാക്കിസ്ഥാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങോട് പറഞ്ഞു ഈ വിഷയത്തിൽ ആരും രാഷ്ട്രീയം കളിക്കുന്നില്ല സൈനികർക്ക് കരുത്തു പകരുകയാണ് എല്ലാവരും ചെയ്യുന്നത് രാജ്യം ഒന്നായി നിൽക്കേണ്ട അവസരത്തിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ഉചിതമാണോ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇതേ തുടർന്ന് ശ്രീനഗർ ബെനിഹാൽ ബറാമുള്ള ബെനിഹാൽ മേഖലകളിലെ ട്രെയിൻ സർവീസുകളും ഇന്നലെ റദ്ദാക്കിയിരുന്നു സംസ്ഥാനത്തെ പല പ്രശ്ന ബാധിത സ്ഥലങ്ങളിലും പോലീസും സി

എഫും കനത്ത് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്

കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇന്റസ്ട്രീയൽ റിസെർച്ച് സ്ഥാപക ഡയറക്ടർ ഡോ

ആണവായുധങ്ങൾ ഉപേക്ഷിച്ചാൽ ഉത്തരകൊറിയയ്ക്ക് ശ്രേഷ്ഠമായ ഭാവി ആസ്വദിക്കാൻ ആവുമെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു് ്ഉത്തരകൊറിയയ്ക്ക് വൻ സാമ്പത്തിക സാധ്യതകൾ ഉണ്ടെണ്ടു് കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി ട്രംപ് ആവർത്തിച്ചുകൃഎ്ല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ നല്ലൊരു തീരുമാന്ത്തിൽ എത്തിച്ചേരാൻ തനിക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കിം ജോങ് ഉന്നും ഉറപ്പ് നൽകി ചർച്ചകൾ ഇന്നും തുടരുപ്പിക്ഴിഞ്ഞ വർഷം ജൂണിൽ സിംഗപ്പൂരിൽ നടന്ന ച്ഛതിത്രപ്രമായ ആദ്യ ഉച്ചകോടിക്ക് എട്ടുമാസത്തിന് ശേഷമാട്ടണ് വീണ്ടുംകൂടിക്കാഴ്ച നടക്കുന്നത് കൊറിയൻ പ്രവിശ്യയിലെ ആണവ നിരായുധീകരണം പ്യോങ്ഗ്യാങിന് മേൽ ഏർപ്പെടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കൽ ്തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു

ഗഡ്കരി ശിലാസ്ഥാപനം നിർവഹിക്കും

ആന്ധ്രപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് പുതിയ മേഖലയുടെ ആസ്ഥാനം നിലവിൽ ദക്ഷിണ മധ്യ റെയിൽവെയുടെ കീഴിൽ വരുന്ന ഗുണ്ടാകൽ ഗുണ്ടൂർ വിജയവാഡ എന്നീ ഡിവിഷനുകൾ ഇനി മുതൽ പുതിയ മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കും

ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു യുവാക്കൾക്കിടയിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ചടങ്ങിൽ പ്രകീർത്തിച്ചു

വോട്ടിംഗ് യന്ത്രങ്ങളിൽ വോട്ടു രേഖപ്പെടുത്താൻ സമയം കൂടുതൽ എടുക്കുമെന്ന് കാണിച്ചാണ് ബി ജെ

ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ജെ

എസ് റാത്തോഡ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്

സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

സംസ്ഥാനത്തെ ക്രമസമാധുള്ള പ്പാലനം അവലോകനം ചെയ്യുന്നതിന് ഇറ്റാനഗറിൽ ചേർന്നു ഉന്നൂതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യ്മന്ത്രി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേയ്ക്ക് എത്തിക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒത്ത്രൂമുയോടെ പ്രവർത്തിക്കണമെന്നും സ്ഥിതിഗതികൾ സസൂക്ഷ്മകൃനീരീക്ഷിക്കണമെന്നും പെമ ഖണ്ഡു ആവശ്യപ്പെട്ടു സംസ്മൃഹ്ച്ച് സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധ്പ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അക്രമ സംഭവങ്ങൾ ആരംഭിച്ചത്

ഗ്ലെൻ മാക്സ്വെല്ലിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ഓസ്ട്രേലിയയ്ക്ക് മികച്ച വിജയം സമ്മാനിച്ചത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്ക് ശനിയാഴ്ച ഹൈദരാബാദിൽ തുടക്കമാകും

ജമ്മു കശ്മീരിലെ നാലിടങ്ങളിലും ഡൽഹിയിലെ മൂന്നിടങ്ങളിലുമാണ് ആദ്ദായ നികുതി വകുപ്പ് തെരച്ചിൽ നടത്തിയത് വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അനധികൃതമായ പണമിടപാട് സംബന്ധിച്ച് തെരച്ചിൽ നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു തെരച്ചിലിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തി

സംരംഭകരിൽ പുത്തൻ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം രാജ്യത്തെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ സൂക്ഷമ ചെറുകിട ഇടത്തര സംരംഭകർക്കായി സാങ്കേതിക രംഗത്ത് നിരവധി പുത്തൻ കണ്ടുപിടിത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിനെ കുറിച്ച് സംരംഭകർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സൂക്ഷമ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്